സംസ്ഥാനത്ത് കനത്ത ജാഗ്രത

മുതിർന്ന കോൺഗ്ര്സ്ട് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടിയുടെ പ്രാഥമിക്കാംഗത്വം രാജിവച്ചു

കരാർ സംബന്ധിച്ച അമേരിക്കയുടെ പ്രമേയത്തിന് ഐകൃരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ അംഗീകാരം

മത്സരത്തിൽ വികാസ് കൃഷനും സിമ്രൻജിത്ത് കൌറും ഫൈനലിൽ

വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിനിമ തീയേറ്ററുകളും ഈ മാസം അവസാനം വരെ അടച്ചിടും ചികിത്സയിൽ കഴിയുന്ന മൂന്നു വയസ്സുകാരന്റെ മാതാപിതാക്കൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

എന്നാൽ മൂന്നു പേരുടെയും നില തൃപ്തികരമാണെന്ന് ആരോഗ്യമന്ത്രി കെ

ഇറ്റലിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇവർ യാത്ര ചെയ്ത വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്

അനാവശ്യമായ വിദ്ദേശ്രിയാത്രകൾ ഒഴിവാക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കൊറോണ വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി നിലവിൽ വന്ന നിയമം താൽക്കാലികമാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണമെന്ന് ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുന്ന ഇറ്റലിയിലുള്ള വിദ്യാർത്ഥികളോട് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു

ബംഗളൂരുവിലും പൂനെയിലുമാണ് പുതിയതായി രോഗം റിപ്പോർട്ട് ചെയ്തത്

കേരളം രാജസ്ഥാൻ തമിഴ്നാട് പഞ്ചാബ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും ആരോഗ്യ മന്ത്രിമാരുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ ആശയ വിനിമയം നടത്തിയെന്നും ശ്രീ

ഫ്രാൻസ് ജർമനി സ്പെയിൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇ വിസയും അടിയന്തരമായി റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യ മ്യാൻമർ അന്താരാഷ്ട്ര അതിർത്തി താത്ക്കാലികമായി മണിപ്പൂർ സർക്കാർ അടച്ചിട്ടിരിക്കുകയാണ്

ഇതിൽ മൂന്നുപേർ ഇറ്റലിയിൽ നിന്ന് ക്കൊൽക്ക്ത്ത എയർപോർട്ടിൽ എത്തിയവരാണ്

സംസ്ഥാനത്ത് ഇതുവരെ ആർക്കൂം ് രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറീയിച്ചു

അതേസമയം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ പുറത്താക്കിയതാണെന്ന് കോൺഗ്രസ് അറിയിച്ചു

ജ്യോതിരാദിത്യ സിന്ധ്യ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു

എൽ എ മാർ തങ്ങളുടെ രാജി സമർപ്പിച്ചതോടെ മധ്യപ്രദേശിലെ കമൽനാഥ് മന്ത്രിസഭ നിലംപതിക്കുമെന്ന സ്ഥിതിയിലാണ്

എൽ എ മാർ ഗവർണർ ലാൽജി ടാണ്ടന് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് അതേസമയം ബിസഹുലാൽ സിങ് എടാൾസിങ് ഘൻസാന മനോജ് ചൌധരി എന്നിവർ സ്പീക്കർക്കാണ് രാജിക്കത്ത് സമർപ്പിച്ചത്

പാർട്ടികളുടെ ഓരോ അംഗങ്ങളുടേയും നാല് സ്വതന്ത്രുടെയും പിന്തുണയോടെയാണ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നത്

ഈ മാസം ഏഴാം തീയതി മരിച്ച മുഹമ്മദ് അലിയുടെ കൊറോണ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ലഡാീക്ക് ആരോഗ്യസെക്രട്ടറി കമ്മീഷണർ റിഗ്സിൽ സംപെൽ പറഞ്ഞും പ്രോ്സ്റ്റേറ്റ് അണുബാധയാണ് മരണകാരണം ഇറാനിൽ നിന്നെത്തിയ് ദ്യാ തീർത്ഥാടകരും നിരീക്ഷണത്തിലാണെന്നും ശ്രീ

ഇതിൽ അഞ്ചുപേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു

നിലവിലെ സാഹചര്യത്തിൽ വിദേശികൾക്ക് സംസ്ഥാനത്ത് പ്രവേശിക്കാൻ കഴിയില്ല

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബിജെപി അദ്ധ്യക്ഷൻ ജെ

മഹാരാഷ്ട്രയിൽ ഏഴും തമിഴ്നാട്ടിൽ ആറും ബിഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ അഞ്ചും ഓഡിഷ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നാല് സീറ്റുകൾ വീതവുമാണുള്ളത്

പാക് അധിനിവേശ കശ്മീരിലെയും ഗിൽജിത്ത് ബാർട്ടിസ്ഥാനിലെയും വർദ്ധിച്ചുവരുന്ന മനുഷ്യാവുകാ്ശ ലംഘനങ്ങൾ ഗൌരവതരമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിരോഗ്ദിത് തീവ്രവാദ സംഘടനകളിലെ നേതാക്കൾ സ്വതന്ത്രരായി കഴിയുന്നുവെന്നും ഇത് പാകിസ്ഥാൻ അവർക്ക് നൽകുന്ന പിന്തുണ വൃക്തമാക്കുന്നുവെന്നും നാസിർ അസീസ് സമ്മേളനത്തിൽ പറഞ്ഞു ഭീകരവാദം അസഹിഷ്ണുത അക്രമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ പാകിസ്ഥാന് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം മനുഷ്യാവകാശ സമിതിയോട് ആവശ്യപ്പെട്ടു

റിപ്പബ്ലിക്ക് ഓഫ് അഫ്ഗാനിസ്ഥാൻ സർക്കാരിനോട് സമാധാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് പ്രമേയത്തിൽ സുരക്ഷാ സമിതി ആവശ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രീയത്തിലെയും പൊതു സമൂഹത്തിലെയും നേതാക്കൾ സ്ത്രീകൾ എന്നിവരെ ഉൾപ്പെടുത്തിയ സമഗ്രമായ ചർച്ചകൾ വേണമെന്നും സമിതി പറഞ്ഞു

രാജ്യത്ത് ആക്രമണങ്ങൾ കുറയ്ക്കാനുള്ള താഴ്സിബാന്റെ സന്നദ്ധതയെ അടിസ്ഥാനമാക്കിയിരിക്കും തടവുകാരെ മുട്ട്ചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി

സി

എട്ട് മത്സരാർത്ഥികളും സെമി ഫൈനൽ വരെ എത്തിയതോടെ ഒളിമ്പിക്സ് യോഗ്യത നേടിക്കഴിഞ്ഞു ഇന്ന് നടക്കുന്ന ഫൈനലിൽ വികാസ് കൃഷൻ ജോർദ്ദാന്റെ എയ്ഷയ് ഹുസൈനയും സിമ്രൻജിത്ത് കൌർ ദക്ഷിണ കൊറിയയുടെ ഓഹ് ലിയോൺ ജിയെയും നേരിടും

ലോകചാമ്പ്യൻ പി

കോറോണ വൈറസ് പടരുന്നതിനാൽ ജർമ്മനി ഓപ്പൺ ഉൾപ്പെടെ നിരവധി മത്സരങ്ങൾ മാറ്റിവച്ചിട്ടുണ്ട്